കോവിഡിനെനേരിടുന്നതിൽ ഇന്തൃ മികച്ച പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നതെന്ന് ആരോഗ്യമന്ത്രാലയം

കോവിഡ് സാഹചര്യങ്ങളും പ്രതിരോധ മാർഗ്ഗങ്ങളും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗം പുരോഗമിക്കുന്നു

കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് മാറ്റിവെച്ച പ്തസ് വൺ പ്ലസ് ടു പരീക്ഷകളും പുനരാരംഭിച്ചു

ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണിതെന്ന് ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ വ്യക്തമാക്കി രാജ്യത്ത് കോവിഡ് സാമൂഹ്യവ്യാപനം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഒന്നരലക്ഷം കഴിഞ്ഞു

മഹാരാഷ്ട്ര തമിഴ്നാട് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് രോഗബാധയിൽ മുന്നിലുള്ളത്

രോഗബാധ തടയാൻ വൃക്തി ശുചിത്രൂർ സാമൂഹ്യ അകലം എന്നിവ പാലിക്കാൻ ആരോഗ്യമ്പ്ത്ത്യാല്യം അഭ്യർത്ഥിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ചെക്ക് പോയിന്റുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ബിൽഡിംഗ് സെക്യൂരിറ്റി ഗാർഡുകൾ എയർപോർട്ട് സ്റ്റാഫ് ബസ് ഡ്രൈവർമാർ പച്ചക്കറി വഴിയോര കച്ചവടക്കാർ ഫാർമസിസ്റ്റുകൾ എന്നിവരെയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്ന മുറ്റയ്ക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഇന്ത്യൻ കൃഷ്ണ്ട്സിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നത്

ഗവേഷണത്തിനും ഉത്പാദനത്തിനും വിതരണത്തിനും ഉൾപ്പെടെ ആഗോളതലത്തിൽ വിഭവങ്ങളുടെ ഉപയോഗം ആവശ്യമാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു ആരോഗ്യ രക്ഷ മെച്ചപ്പെടുത്താനുള്ള നൂതന മാർഗ്ഗങ്ങൾ ആവിഷ്ക്കരിക്കുന്നതിൽ ഗേറ്റ്സ് ഫൌണ്ടേഷൻ തങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ഹർഷ്വർദ്ധനെ പ്രകീർത്തിച്ചുള്ള ബിൽ ഗേറ്റ്സ് ഫൌണ്ടേഷന്റെ ട്വീറ്റുകൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം

ലോകത്ത് മറ്റൊരിടത്തും ഇത്തരത്തിൽ ഒരു സർക്കാർ ഉത്പന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഓപ്പൺ സോഴ്സ് ആക്കിയതോടെ സാങ്കേതിക വിദഗ്ധരിൽ നിന്നും അവരുടെ അറിവ് പ്രയോജനപ്പെടുത്താനും സഹകരണം വർദ്ധിപ്പിക്കാനും സാധിക്കും

വിദ്ദേശക്ാര്യമന്ത്രി ഡോ

ദുബായ് ഡബ്ലിൻ അബുദാബി കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളുമായി വിമാനങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തും

വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്നവർ ഏഴു ദിവസം ഹോട്ടൽ കാറന്റൈനും ബാക്കി ഏഴ് ദിവസം ഹോം ഐസൊലേഷനും വിധേയമായാൽ മതിയെന്ന ആരോഗ്യമന്ത്രാലയത്തിന്റെ പുതുക്കിയ മാർഗ്ഗനിർദ്ദേശത്തിന്റെ പശ്ചാത്തലിത്തിലാണ് ഈ നിർദ്ദേശം

ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് വികസിപ്പിച്ച വിമാനം ഈ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും ചെറിയ ഭാരം കുറഞ്ഞതും ആകാശയുദ്ധങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുന്നതുമാണ്

കരസേനാ മേധാവി എം

നരവാനേയാണ് അദ്ധ്യക്ഷത വഹിക്കുന്നത്

നാലാം ഘട്ട അടച്ചിടൽ അവസാനിക്കാനിരിക്കെ ചേരുന്ന യോഗം നിർണായകമാണ് വിഷയത്തിൽ ഇന്നലെ സംസ്ഥാനത്തെ എം പി മാരുടേയും എം

എ മാരുടേയും യോഗം ചേർന്നിരുന്നു

അത്തരം തീരുമാനം എടുത്തിട്ടില്ലെന്നും സ്കൂളുകൾ തുറക്കുന്നതിനുള്ള വിലക്ക് രാജ്യത്തൊട്ടാകെ തുടരുകയാണെന്നും മന്ത്രാലയം വൃക്തമാക്കി

ഇന്നലെ രാജ്യത്ത് ഏറ്റവുമധികം ചൂട് രേഖപ്പെടുത്തിയത് രാജസ്ഥാനിലെ ചുരുവിലാണ്